കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അറസ്റ്റിൽ

തട്ടിക്കൊണ്ടുപോയ നാല് പോലീസ് ഉദ്യോഗസ്ഥരിൽ രണ്ട് സ്പെഷ്യൽ ഓഫീസർമാരുടെയും ഒരു കോൺസ്റ്റബിളിന്റേയും മൃതദേഹങ്ങൾ ഷോപിയാനിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു

ദക്ഷിണ കാശ്മീരിലെ ഷോപിയാൻ ജില്ലയിലുള്ള കപ്രാൻ ബാത്തഗുണ്ട് പ്രദേശത്തെ രണ്ട് ഗ്രാമങ്ങളിൽ നിന്നായി നാല് ഉദ്യോഗസ്ഥരെയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുൾ മുജാഹിദീൻ ഏറ്റെടുത്തായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഉണ്ട്

സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങളിലെ വെല്ലൂവിളികൾ നേരിടാൻ പൊലീസ് ഉദ്യോഗസ്ഥർ സദാ സന്നദ്ധിരാണ് തീവ്രവാദികളെ നേരിടുന്നതിൽ സംസ്ഥാനത്തെ പൊല്ലീസ് മികച്ച സേവനമാണ് കാഴ്ചവയ്ക്കുന്നത്

വിശദാംശങ്ങളുമായി സുവർണ

എൻ പൊതു സഭാസമ്മേളനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടത്താനിരുന്ന ചർച്ചയാണ് റദ്ദാക്കിയത് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പാക് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ചർച്ചയിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ തീരുമാനിച്ചത് തീവ്രവാദത്തെ മഹത്വല്ക്കരിക്കുന്ന രീതിയിൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ പാക് നടപടിയേയും ഇന്തൃ ശക്തമായി വിമർശിച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഒഡീഷയിലെ താൽച്ചറിൽ രാസവളനിർമ്മാണ ശാലയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സ്മരണയ്ക്കായുള്ള സ്മാരകം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ജർജൻബാഹൽ കൽക്കരിപ്പാടം ഝർസുഗുഡ ബാരാപലി സർദേഗ റെയിൽപാത എന്നിവയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും തുടർന്ന് ഛത്തീസ്ഗഡിലെ ജഞ്ച്ഗീർ ചമ്പയിലെത്തുന്ന പ്രധാനമന്ത്രി പരമ്പരാഗത കൈത്തറി കാർഷിക പ്രദർശനം സന്ദർശിക്കും ദേശീയപാതാ പെന്ത്രാ അനുപൂർ റെയിൽവേപാത പദ്ധതികൾക്കും ശ്രീ

ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പൊതു സമ്മേളന്റ്ത്തയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

മൂന്നു ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് കോട്ടയം എസ്

ഇന്ന് രാവിലെ അന്വേഷണ സംഘം കുറവിലങ്ങാട്ടെ മഠത്തിൽ എത്തി പരാതിക്കാരിയായ കന്യാസ്ത്രീയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു

അറസ്റ്റ് വിവരം അറിഞ്ഞതോടെ സമരത്തിൽ തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവർക്കെല്ലാം കന്യാസ്ത്രീകൾ നന്ദി പറഞ്ഞു എന്നാൽ അറസ്റ്റ് സംബന്ധിച്ച ഔദ്യോഗിക വിവരം ലഭിക്കുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്നും അവർ അറിയിച്ചു

എല്ലാവരും സഹകരിച്ചാലേ നവകേരളത്തെ പടുത്തുയർത്താൻ കഴിയൂ

അമേരിക്കൻ മലയാളികൾ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ ദുരന്തനിവാരണ മാനദണ്ഡപ്രകാരം കിട്ടുന്ന പണം മാത്രം പുനരുദ്ധാരണത്തിന് മതിയാകില്ല ഒരുമാസത്തെ ശമ്പളം കൊടുക്കാൻ തയ്യാറുള്ളവരെല്ലാം ഗ്ലോബൽ സാലറി ചലഞ്ചിൽ പങ്കെടുക്കണം രാജ്യാന്തര തലത്തിൽ പണം സമാഹരിക്കാനായി മൂന്ന് മാസത്തിനകം ധനദാതാക്കളൂടെ സമ്മേളനം വിളിച്ചു ചേർക്കൂമെന്നൂം സഹായം ശേഖരിക്കുന്നതിന് ധനമന്ത്രി തോമസ് ഐസക്കിനെ അമേരിക്കയിലേക്ക് അയക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പ്പുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് മൽക്കംഗിരി ബാല്പസ്സോർ ് കോരപ്പുട്ട് ജില്ലകളിൽ കനത്തമഴയെതുടർന്ന് നദികൾ ക്രിക്ക്പിഞ്ഞൊഴുകുകയാണ്

അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് മൽക്കംഗിരി ജില്ലയില്ലി സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി നവീൻ പട്നായിക് വിലയിരുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ അദ്ദേഹം നിർദ്ദേശം നല്കിയിട്ടുണ്ട്

തുടർന്ന് രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

അൽഷിമേഴ്സിനെ ക്റിച്ച് തിരുവന്തപുരം മെഡിക്കൽ കോളേജിലെ മനശാസ്ത്രജ്ഞൻ ഡോ അരുൺ ബി നായർ ആകാശവാണിയോട്

ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്

മുഖ്യമന്ത്രി സർബാനന്ദ സൊനോവാൾ സ്ഥിതിഗതികൾ വിലയിരുത്താനായി മന്ത്രി തപൻ ഗുഗോയിയെ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്

സ്വർണ്ണവില കുറഞ്ഞു

ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് കളിയും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർ ഫോർ ഘട്ടത്തിലെ ആദ്യ മൽസരത്തിൽ കടക്കുന്നത്

ശ്രീകാന്ത് പി

പുരുഷവിഭാഗം സിംഗിൾസിൽ ലോകചാമ്പ്യൻ ജപ്പാന്റെ കെന്റോ മോമോട്ടോയാണ് ശ്രീകാന്തിനെ പരാജയപ്പെടുത്തിയത് വനിതാ സിംഗിൾസിൽ ചൈനയുടെ ചെൻ യുഫേയിയോടാണ് സിന്ധു പരാജയപ്പെട്ടത്